കേരളത്തിൽ എത്തും ഏഴിമല നാവിക അക്കാദമിക്ക് പ്രസിഡന്റ്സ് കളേഴ്സ് പുരസ്ക്കാരം നാളെ സമ്മാനിക്കും

രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാന്യത്തിൽ രാജ്യസഭ ഏറെ പ്രധാനപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി ന്ന്റര്യേന്ദ്ര്മോദി

ഇന്ന് കൊടിയിറക്കം പാലക്കാട് മുന്നേറ്റം തുടരുന്നു

മികച്ച പ്രവർത്തനത്തിനുള്ള പ്രസിഡന്റ്സ് കളേഴ്സ് പുരസ്കാരം കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിക്ക് രാഷ്ട്രപതി നാളെ സമ്മാനിക്കും

സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ വിമാനത്താവളത്തിൽ സ്കൂീകരിക്കും ഏഴിമല നാവിക അക്കാദമിക്ക് പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിക്കുന്നതിനാണ് രാഷ്ട്രപതി എത്തുന്നത് നാളെ രാവിലെ എട്ടുമുണ്ണിക്ക് നാവിക അക്കാദമിയിൽ നടക്കുന്ന പ്രൌഡഗംഭീരമായ ചടങ്ങിൽ പ്രിസിഡ്ന്റ്സ് കളർ അവാർഡ് രാഷ്ട്രപതി അക്കാദമിക്ക് സമ്മാനിക്കും ് മീക്കിച്ച് സേവനം പരിഗണിച്ച് ഒരു സൈനീക കേന്ദ്രത്തിന് നൽകുന്ന പ്ർമ്മോന്നത ബഹുമതിയാണ് കളർ പുരസ്കാരം

സുരക്ഷ പരിശോധനയുടെ ഭാഗമായി കൊച്ചി നേവൽ ബേസിൽ നിന്ന് രണ്ട് അതിവേഗ ഇന്റർസെപ്റ്റർ ബോട്ടുകൾ ഇന്നലെ കണ്ണൂർ അഴീക്കൽ തുറമുഖത്തെത്തിയിട്ടുണ്ട്

ശീതകാല സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ പ്രത്യേക സംവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് രാജ്യസഭ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ പ്രക്രിയയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിനും രാജ്യസഭ അത്യന്താപേക്ഷിതമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എന്നാൽ നിയന്ത്രണാധികാരം നിയമനിർമാണ പ്രക്രിയയെ തടസപ്പെടുത്തുന്നില്ല എന്ന് അംഗങ്ങൾ ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആപ്തവാക്യം ഏറ്റവും വ്യക്തമായി പ്രതിഫലിക്കുന്ന ഇടമാണ് രാജ്യസഭയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക പരിവർത്തനത്തിൽ രാജ്യസഭയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണെന്ന് സഭാദ്ധ്യക്ഷൻ എം വെങ്കയ്യനായിഡു അഭിപ്രായപ്പെട്ടു

കഴിഞ്ഞ മാസം വരെയുള്ള കണക്കാണ് ഇതെന്നും മന്ത്രി അറിയിച്ചു

തായിലന്റിലെ ബാങ്കോക്കിൽ ഇന്ത്യൻ ചേമ്പർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയ്ക്ക് കീഴിൽ ഇന്ത്യയിലെ പ്രതിരോധ മേഖലയ്ക്ക് പ്രഥമ പരിഗണനയാണ് നൽകുന്നത് ഇറക്കുമതി കുറച്ച് ഇന്ത്യയെ പ്രധാന പ്രതിരോധ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കഴിഞ്ഞ രണ്ടുവർഷമായി പ്രതിരോധമേഖലയുടെ കയറ്റുമതി ആറ് മടങ്ങായിട്ടുണ്ട്

നാലു സൈനികരും രണ്ടു പോർട്ടർമാരുമാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെയാണു ഹിമപാതമുണ്ടായത് പട്രോളിംഗിനിടെയായിരുന്നു അപകടം സൈനികരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കരസേനയുടെ നേതൃത്വത്തിലാണു നടന്നത് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആറു പേർ മരിച്ചിരുന്നു

അതിനിടെ പുൽവാമ ജില്ലയിൽ ഇന്നലെ രണ്ട് ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു അരിഹാൽ പ്രദേശത്ത് സ്ഫോടനം നടത്തിയതുൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളാണ് ഇവർ

പൂഞ്ചിലെ ഷാപൂരിലെയും കിർനിയിലെയും ഫോർവേഡ് പോസ്റ്റിലും ജനവാസ മേഖലയിലും പാകിസ്ഥാൻ സൈന്യം വെടിവെയ്പും ശക്തമായ ഷെല്ലാക്രമണവും നടത്തിയതായി പ്രതിരോധ വക്താവ് ആകാശവാണിയോട് പറഞ്ഞു ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ഐ ഗവർണർ ശക്തികാന്ത ദാസ്

ബി ഐ യുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ട നൈപുണ്യ പരിശോധന അടക്കമുള്ളവ വിലയിരുത്താനാണ് സൂപ്പർവൈസർമാരുടെ പുതിയ സംഘത്തെ നിയോഗിക്കുന്നത്

നാളെ മുതൽ രാവിലെ പത്തുമണിക്ക് അടയ്ക്കുന്ന റൺവേ ഉെവകിട്ട് ആറിന് തുറക്കും

സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് ഇത്തവണ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്

ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ നാളെ വൈകിട്ട് അമ്പതാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രിമാരും ചലച്ചിത്ര പ്രവർത്തകരും മറ്റ് വിശിഷ്ടാതിഥികളും ഉൾപ്പെടെയുള്ള പ്രൌഢ സദസ്സാണ് ഉദ്ഘാടനത്തിനുണ്ടാവുക സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ ചലച്ചിത്രമേളയെ വ്യത്യസ്തമായ അനുഭവമായി മാറ്റാനാണ് സംഘാടകരുടെ ഒരുക്കം

പതിനായിരത്തോളം പേർ പങ്കാളികളാകും

അമിതാഭ് ബച്ചന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നാളെ സമ്മാനിക്കും

അടുത്തവർഷം നടക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നവി മുംബൈ മേഖലയിലെ പാർട്ടിയുടെ ചുമതലയും മുൻ എം എൽ